പരിഗണിക്കാതെ പരസ്പര വിശ്വാസം കണക്കിലെടുത്താണ് ഇന്ത്യ മറ്റ് ര്യൂജൃങ്ങളുമായി സൌഹൃദത്തിൽ ഏർപ്പെടുന്നുകൃത്ത്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

കോവിഡ് മഹാമാരിയെ ഇന്തൃ ഫലപ്രദമായി ന് പ്രതിരോധിക്കുന്നുണ്ടെന്നും വർദ്ധിച്ചു വരുന്ന രോഗമുക്തി നിരക്കും കുറയുന്ന മരണനിരക്കും ഇതിന് ഉദാഹരണമാണെന്നും കേന്ദ്ര ആരോഗൃമന്ത്രി ഹർഷ് വർദ്ധൻ

കണക്കുകൾ പ്രകാരം കോവിഡ് സ്ഥിരീകരിച്ചു

ബലിപെരുന്നാൾ ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഗവർണർ ആരിഫ്പ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി പ്പിജയനും പെരുന്നാൾ ആശംസകൾ നേർന്നു

മൌറീഷ്യസ് സുപ്രീം കോടതിയുടെ പുതിയ മന്ദിരതിന്റെ ഉദ്ഘാടനം മൌറീഷ്യസ് പ്രധാനമന്ത്രി പ്രവിന്ദ് ജുഗ്നൌദിനൊപ്പം ിർവഹിക്കുകയായിരുന്നു അദ്ദേഹം കൂടുതൽ വിവരങ്ങളുമായി ജോസ്ന പങ്കാളിത്ത രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ബന്ധം പരസ്പര വിശ്വാസത്തെയും വികസന തത്വങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി പറഞ്ഞു ലാഭേച്ഛയോ സാമ്പത്തിക പ്രത്യാഘാതങ്ങളോ പരിഗണിക്കാതെയാണ് ഇന്ത്യ സുഹൃത്ബന്ധങ്ങളിൽ ഏർപ്പെടുന്നത് മൌറീഷ്യസിന്റെ വികസനത്തിനുതകുന്ന പദ്ധതികളിൽ പങ്കാളിയാകാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്നും ഇന്ത്യ മൌറീഷ്യസ് സൌഹൃദത്തിലെ സുവർണ നിമിഷമാണിതെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു

കോവിഡ് രോഗവ്യാപനത്തെ തടയുന്നതിൽ മൌറീഷ്യസ് ഗവൺമെന്റെടുത്ത നടപടികളെ ശ്രീ

ഇന്തൃ മൌറീഷ്യസ് ഉഭയകക്ഷി സഹകരണത്തിന്റെ സുവർണ നിമിഷത്തിനാണ് ഇന്ന് ലോകം സാക്ഷിയായതെന്ന് മൌറീഷ്യസ് പ്രധാനമന്ത്രി പ്രവിന്ദ് ജുഗ്നൌദ് പറഞ്ഞു ഇന്ത്യ നൽകിയ സഹായം മൌറീഷ്യസ് ജനത ഹൃദയത്തിൽ സൂക്ഷിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇതിലൂടെ ലോക വേദികളിൽ അറിവിന്റെ സ്ടൂപ്പർ പ്വറായി ഇന്ത്യ മാറുമെന്നും അദ്ദേഹം പ്രതീക്ഷ പ്രകട്ടിപ്പിച്ചു് രാജ്യത്തെ എല്ലാ വിദ്യാർത്ഥികൾക്കും ജീദ്യാഭ്യാസത്തിനുള്ള അവസരം ഒരുക്കുന്നത് വഴി അവ്മുടെ സമഗ്രവികസനം ഉറപ്പാക്കുകയാണ് പുതിയ വിദ്യാഭ്യാസ നയത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം ആകാശവാണിയോട് പറഞ്ഞു പുതിയ നയം ആറാം ക്ലാസ്സ് മുതൽ തന്നെ പാഠ്യേതര വിഷയങ്ങൾക്കും നൈപുണ്യ വികസനത്തിനും കൂടുതൽ പ്രാധാന്യം നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു യുജിസി എൻസിറ്റിഇ എഐസിറ്റിഇ എന്നിവയെ ഒരു കുടകീഴിൽ കൊണ്ടു വരുന്നതിന്റെ ഭാഗമായി ഉന്നത വിദ്യാഭ്യാസ കമ്മീഷന് രൂപം നൽകും രാജ്യത്തിന്റെ ഗവേഷണ വികസന പ്രവർത്തനങ്ങൾ വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഒരു ദേശീയ ഗവേഷണ ഫൌണ്ടേഷന് രൂപം നൽകുമെന്നും കേന്ദ്ര മന്ത്രി അറിയിച്ചു

കോവിഡ് നിയന്ത്രണത്തിന് സി

ആർ സാങ്കേതിക വിദ്യ എന്ന പുസ്തകം പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ആറ് മാസമായി കോവിഡ് മഹാമാരിയ്ക്കെതിരെ വിജയകരമായ പോരാട്ടമാണ് രാജ്യം നടത്തുന്നത്

സി എം ആർ പോർട്ടലുമായി ബന്ധപ്പെട്ട സാങ്കേതിക ജോലികൾ കാരണം ഉച്ചവരെയുള്ള കണക്കുകൾ മാത്രമാണ് ഉൾപ്പെടുത്താനായതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു

പൊതുഗതാഗത സംവിധാനങ്ങൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങളിൽ മാറ്റമില്ല

ഈ വിഭാഗത്തിൽ ഉൾപ്പെട്ടവരിൽ രക്തം കട്ടപിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് അമേരിക്കയിലെ ടഫ്റ്റസ് സർവ്വകലാശാല സ്കൂൾ ഓഫ് മെഡിസിൻ ഗവേഷകർ അഭിപ്രായപ്പെട്ടു

എല്ലാ മലയാളികൾക്കും കേരള ഗവർണർ ശ്രീ

ത്യാഗത്തെയും അർപ്പണമനോഭാവത്തെയും വാഴ്ത്തുന്ന ബക്രീദ് സ്നേഹവും അനുകമ്പയും സഹകരണവും കൊണ്ട് നമ്മെ കൂടുതൽ ഒരുമിപ്പിക്കട്ടെ എന്ന് ഗവർണർ ആശംസിച്ചു ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈദ് ആശംസകൾ നേർന്നു കോവിഡ് മഹാമാരി സൃഷ്ടിച്ച പ്രതിസന്ധി മൂലം പതിവ് ആഘോഷങ്ങൾക്കുള്ള സാഹചര്യമല്ല ലോകത്തെവിടെയുമുള്ളതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പള്ളികളിൽ വളരെ കുറച്ചുപേർക്ക് മാത്രമാണ് പെരുന്നാൾ നമസ്കാരത്തിന് അനുമതി നൽകിയിരിക്കുന്നത് കോവിഡ് മാനദണ്ഡങ്ങൾ എല്ലാവരും പൂർണമായും പാലിക്കണമെന്നും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു

ഇതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി അർമേരിക്കൻ ഇന്ത്യ പൊതുകാര്യ സമിതി പ്രസിഡന്റ് ജഗദീഷ് സ്ക്വാനി അറിയിച്ചു

റെഡ് ക്രോസ് സൊസൈറ്റിക്ക് വേണ്ടി പ്രത്യേകം രൂപകൽപന ചെയ്ത ഇരട്ട പാളികളുള്ള കോട്ടൺ മാസ്കുകൾ ആണ് വാങ്ങുന്നത് അടുത്ത മാസത്തോടെ മാസ്കുകൾ നിർമ്മിച്ചു നൽകും

ആത്മനിർഭർ ഭാരതിനായി വ്യാപാരം അനായാസമാക്കലുമായി ബന്ധപ്പെട്ട കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ ഡിജിറ്റൽ കോൺഫ്റ്റ്റർസ് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു ് അദ്ദേഹം

ആക്രമണത്തിൽ ആള്ച്ചായ്ം ഉണ്ടായിട്ടില്ലെന്നും മേഖലയിൽ തിരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ടെന്നും പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു